പ്രചാരണത്തിന് വിലക്കേർപ്പെടുത്തിയ തെരഞ്ഞെടൂപ്പ് കമ്മീഷന്റെ ഉത്തരവിനെതിരെ മായാവതി സമർപ്പിച്ച ഹർജി സൂപ്രീംകോടതി പരിഗണിക്കാൻ വിസമ്മതിച്ചു

മൂസ്ലീം സ്ത്രീകൾക്ക് പള്ളികളിൽ പ്രാർത്ഥന നടത്താൻ അനുവദിക്കണമെന്ന ഹർജിയിൽ സൂപ്രീം കോടതി കേന്ദ്രത്തിന് നോട്ടീസയച്ചു

ഐ പി എൽ ക്രിക്കറ്റിൽ കിംഗ്സ് ഇലവൻ പഞ്ചാബ് ഇന്ന് രാജസ്ഥാൻ റോയൽസിനെ നേരിടും മത്സരം എട്ട് മണിക്ക്

സ്ഥാനാർത്ഥികൾ ഇനി നിശബ്ദ പ്രചാരണത്തിൽ അതിനിടെ ആറാംഘട്ട വോട്ടെടുപ്പിന്റെ വിജ്ഞാപനം ഇന്ന് നിലവിൽ വന്നു

മുന്നണി സ്ഥാനാർത്ഥികളും ദേശീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കളും വിവിധ സംസ്ഥാനങ്ങളിൽ അവ്സ്മാന്റവട്ട പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്ത് അണികൾക്ക് ആവേശം പകർന്നു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയിൽ വിവിധ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു

സ്വാതന്ത്യം കിട്ടി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒഡീഷയിലെ ജനങ്ങൾ ദാരിദ്ര്യത്തിലാണ്

രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് ഉൾപ്പെടെയുള്ള വിവിധ മണ്ഡലങ്ങളിൽ ര ു ദിവസം അദ്ദേഹം പ്രചാരണം നടത്തും ന്യൂസ് ഡെസ്ക് ആകാശവാണി

ദേശീയ നേതാക്കളെത്തിയതോടെ മുന്നണി സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിന്റെ വാശിയേറിയ മൂന്നാംഘട്ടത്തിലേയ്ക്ക് കടന്നു

കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ എന്നിവർ പ്രചാരണ രംഗത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റെന്നാൾ വീ ൂം കേരളത്തിൽ എത്തും വൈകിട്ട് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന പ്രചരണ റാലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും

ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവർ കോൺഗ്രസിന് വോട്ടു ചെയ്യണമെന്ന നവജ്യോത്സിംഗ് സിദ്ദുവിന്റെ പ്രസ്താവനയെ പരാമർശിച്ചാണ് ശ്രീ രവിശങ്കർ പ്രസാദ് ന്യൂഡൽഹിയിൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്

തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിനെതിരെ പ്രത്യേക്കം ഹർജി സമർപ്പിക്കുവാൻ ചീഫ് ജസ്റ്റീസ് രഞ്ജൻ ഗോഗോയി അധ്യക്ഷനായ ബഞ്ച് മായാവതിയുടെ അഭിഭാഷകനോട് ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് മറ്റൊരു ഉത്തരവിന്റെ ആവശ്യം ഇപ്പോൾ ആവശ്യമില്ലെന്ന് ബഞ്ച് വൃക്തമാക്കി

കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും പാർട്ടിയുടെ അസമിലെ നിരീക്ഷകനുമായ ഹരീഷ് റാവത്താണ് സിൽച്ചാറിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് പ്രത്യേക പദവി പിൻവലിക്കുന്നത് അസമിന്റെ സാമ്പത്തിക സ്ഥിതിയെ ഗുരുതരമായി ബാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു യു പി എ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയാൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും അസമിനും പുതിയ വൃവസായ നയം ആവിഷ്ക്കരിക്കുമെന്നും റാവത്ത് വ്യക്തമാക്കി

നഗോമിൽ ഏഴ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു ങ്കിലും ബിജെപിയും കോൺഗ്രസും നേരിട്ട് ജനവിധി തേടുന്ന മണ്ഡലമാണിത് പ്രചാരണം സജീവമായി തുടരുകയാണ്

പൂനെയിൽ നിന്നുള്ള ദമ്പതികൾ ഫയൽ ചെയ്ത ഹർജിയിൽ നിലപാട് അറിയിക്കാൻ അവശ്യപ്പെട്ട് ജസ്റ്റിസ് എസ്

കേരളത്തിലെ ശബരിമല വിഷയത്തിലുള്ള പരമോന്നത കോടതിയുടെ വിധി മുൻനിർത്തി കേസ് പരിഗണിക്കുമെന്ന് ബെഞ്ച് ഹർജിക്കാർക്ക് വേ ി ഹാജരായ അഭിഭാഷകനെ അറിയിച്ചു

ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരത്തിനും ഭാര്യ നളിനി ചിദംബരത്തിനും എതിരെയുള്ള ക്രിമിനൽ കേസ് നടപടികൾ റദ്ദാക്കിക്കൊ ുള്ള മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു എന്നാൽ ഹൈക്കോടതി ഉത്തരവിനെതിരെ ആദായ നികുതി വകുപ്പ് നൽകിയ അപ്പീൽ അപേക്ഷ പരിഗണിക്കാൻ പരമോന്നത കോടതി സമ്മതിച്ചു

മഹാർവീറിന്റെ അഹിംസ സമാധാന സന്ദേശങ്ങൾ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ പുഷ്ട്ടിപ്പെടുത്തിയതായി രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു ലോകമെമ്പാടും മതസൌഹാർദ്ദം പുലരാനുള്ള ശ്രമങ്ങളിൽ പങ്കാളികളാകാൻ രാഷ്ട്രപതി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു മഹാവീറിന്റെ അഹിംസ സത്യം സമാധാനം കാരുണ്യം എന്നീ സന്ദേശങ്ങൾ എന്നും പ്രസക്തമാണെന്ന് ഉപരാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു

പോയിന്റ് നിലയിൽ ര ു ടീമുകളും പിന്നിലാണ് എട്ട് പോയിന്റുമായി പഞ്ചാബ് അഞ്ചാം സ്ഥാനത്തും നാലു പോയിന്റുമായി രാജസ്ഥാൻ ഏഴാം സ്ഥാനത്തുമാണ് ചെന്നൈ സൂപ്പർ കിംഗ്സ് ആണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത്

ജസ്റ്റീസ്മാരായ എസ്

ബോബ്ഡേ എസ്

നസീർ എന്നിവരടങ്ങുന്ന ബഞ്ചാണ് കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചത് കേസിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നതിന് സിബിഐ യോടും ആവശ്യപ്പെട്ടിട്ടു കേസിൽ സഹായിക്കുന്നതിന് മുതിർന്ന അഭിഭാഷകൻ പി എസ് നരസിംഹയെ കോടതി നിയോഗിച്ചു

ജസ്റ്റീസ്മാരായ എസ്

ബോബ്ഡേ എസ്

നസീർ എന്നിവരടങ്ങുന്ന ബഞ്ചാണ് നിർദ്ദേശം നൽകിയത്

കോടതി ഏപ്രിൽ ഒന്നിന് കംമ്പയിൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പുനപരീക്ഷ ഫലം പ്രഖ്യാപിക്കാൻ അനുമതി നൽകിയിരുന്നു

ഇന്ത്യയും തായ്ലാന്റുമായുള്ള സാമുദ്രിക ബന്ധം മെച്ചപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം പ്രതിരോക്ക് രംഗ്ത്തെ സഹകരണം മെച്ചപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങൾ അദ്ദേഹം തായ്ലാന്റ് അധികൃതരുമായി ചർച്ച ചെയ്യും തായ്ലാന്റിലെ നാവിക കമാന്റർ ഇൻ ചീഫ് ജനറൽ പോൻപ്രിപ്പാത്ത് ബെൻയാസ്രിയുമായി സുനിൽ ലാംബ കൂടിക്കാഴ്ച നട്ത്തു്

ഈ മാസം സംസ്ഥാനത്ത് താപനില ഉയർന്നു നിൽക്കുമെന്നും കേന്ദ്ര ഭൌമ മന്ത്രാലയത്തിന്റെ അറിയിപ്പിൽ പറയുന്നു പസഫിക് സമുദ്രത്തിന് മുകളിൽ കനത്ത മഴയ്ക്ക് കാരണമാകുന്ന എൽനിനോ പ്രതിഭാസം രൂപപ്പെട്ടിട്ടു ്

ഇതോടെ കേരളത്തിലുൾപ്പെടെ കനത്ത മഴ ലഭിക്കുന്നതിന് കാരണമാകുമെന്നും കേന്ദ്ര ഭൌമ മന്ത്രാലയം വിലയിരുത്തുന്നു